മാലിദ്വീപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും

ഗജ ചുഴലിക്കാറ്റ് ദൂരന്തം വിതച്ച തമിഴ്നാട്ടിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ദുരിതാശ്ചാസ പ്രവർത്തനം

സംസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു

അടിസ്ഥാന സൌകര്യം ആരോഗ്യസുരക്ഷ മാനുപ്പ്പിഭവശേഷി വികസനം സമ്പർക്കം മുതലായ മേഖലകളിലുൾപ്പെടെ തങ്ങളുടെ വികസന മുൻഗണനകളുടെ സാക്ഷാൽക്കാരത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം പ്രധാനമന്ത്രി മാലിദ്വീപ് ഗവൺമെന്റിനെ അറിയിക്കും ജനാധിപത്യപരവും സമാധാനപൂർണ്ണവുമായ മാലിദ്വീപിനെ കാണാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ശ്രീ

പ്രധാനമന്ത്രിയുടെ ആദ്യ മാലിദ്വീപ് സന്ദർശനമാണിത്

മാലിദ്വീപുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് അബ്ദുള്ള യാമിനെ പരാജയപ്പെടുത്തിയാണ് സോലിഹ് വിജയിച്ചത് താൻ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് വിജയത്തിനു ശേഷം സോലിഹ് പറഞ്ഞിരുന്നു പുതിയ നിക്ഷേപങ്ങളും പ്രതിരോധമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും മാലിദ്വീപുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയേക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മു ഡിവിഷനിലെ ഏഴ് ജില്ലകളിലും കശ്മീർ താഴ്വരയിലെ ആറും ലഡാക്ക് മേഖലയിലെ രണ്ട് ജില്ലകളിലുമാണ് വോട്ടെടുപ്പ് അതിർത്തി ജില്ലകളായ പൂഞ്ച് രജൌരി കത്വ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ നീണ്ട ക്യൂവായിരുന്നു പ്രതികൂല കാലാവസ്ഥയിലും ജമ്മു കാശ്മിരിലെ പല്ല സ്ഥലങ്ങളിലും കനത്ത പോളിങ്ങാണ് നടക്കുന്നത്

രാവിലെ എട്ട് മണിക്ക് ആര്യ്ഭ്രിച്ചു വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ തുടരും വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ വോട്ടെണ്ണൽ ആരംഭിക്കും

സഞ്ചരിക്കുന്ന വൈദ്യസംഘങ്ങളെ ദുരന്ത ബാധിത മേഖലകളിൽ നിയോഗിച്ചിട്ടുണ്ട് നാവികസേനയും സംസ്ഥാനത്തിന് സഹായം വാഗ്ദാനം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഇ

അതേസമയം ഗജ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞ് മധ്യ കേരളത്തിലൂടെ അറബിക്കടലിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

പതിമൂന്ന് പേരാണ് ലിസ്റ്റിലുള്ളത് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജന്നൂറൽ സെക്രട്ടറി മുകുൽ വാസ്നിക്കാണ് പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് പൊന്നല ലക്ഷ്മയ്യാണ് ഗ്രെഗോമനിൽ മൽസരിക്കുക തെലങ്കാന രാഷ്ട്രസമിതി അധ്യക്ഷൻ പ്രൊ കോദണ്ഡരാം കോൺഗ്ര്സ്സിന് സീറ്റ് പിട്ട് നൽകിയതിനെത്തുടർന്നാണിത്

സ്വകാര്യ ബസുകളും കെ എസ് ആർ ടി

യും സർവ്വീസ് നിർത്തിവച്ചു സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്

രാവിലെ ചിലയിടങ്ങളിൽ ഹർത്താലനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതായി റിപ്പോർട്ടുണ്ട് ശബരിമലയിൽ ദർശനത്തിന് പോയ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് സന്നിധാനത്ത് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ശശികലയോട് മടങ്ങി പോകാൻ പൊലീസ് അഭ്യർത്ഥിച്ചിരുന്നു ഇത് നിരസിച്ചതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്തത് യുവതീപ്രവേശനം സംബന്ധിച്ച പ്രതിഷേധം കണക്കിലെടുത്ത് ശബരിമലയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഏഴ് ദിവസത്തെ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്

കെയും ധാരണയിലെത്തി

ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന തീവ്രവാദം നേരിടുന്നതിനായുള്ള് ഇന്ത്യ യു

നിരന്തരമായ വിവര കൈമാറ്റത്തിലൂടെയും പ്രസ്പരമുള്ള പ്രവർത്തനക്ഷമതാ നിർമ്മാണ ശ്രമങ്ങളിലൂട്ടെയും മികച്ച പ്രവർത്തന രീതികളും പരസ്പര നിയമ സഹായവും പങ്കുവയ്ക്കുന്നതിലൂടെയും തീവ്രവാദത്തെ ചെറുക്കുന്നതിനുള്ള സഹകരണ നടപടികൾ ഇരു രാജ്യങ്ങളും ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് ഭരണകൂടം പ്രഖ്യാപിക്കാനിരിക്കുകയാണെന്ന് യു

ഇറാൻ രാസായുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നല്ല മിറച്ച് അതിനുള്ള സൌകര്യവും ഉപകരണങ്ങളും ഒരുക്കിക്കൊള്ളുന്നതായാണ് ആരോപണം ഇതു സംബന്ധിച്ച് ഉടനടി യു എസ് ശിക്ഷാനടപടികളൊന്നും കൈക്കൊള്ളുകയില്ലെങ്കിലും ഇറാനെതിരെ രാസായുധ നിരോധന സംഘടനയിൽ പരാതി ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്

ഇന്നലെ വൈകിട്ട് ഇംഫാലിലെ പുതിയ നിയമസഭാ സമുച്ചയത്തിന്റെ ഗേറ്റിനു മുന്നിലാണ് സ്ഫോടനം നടന്നത് പരിക്കേറ്റ ഒരാൾ ബി എസ് എഫ് ഉദ്യോഗസ്ഥനും മറ്റ് രണ്ടുപേർ നിയമസഭയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്

ആരുടെയും നില ഗുരുതരമല്ലെന്നും സംഭവത്തിൽ ഇതുവിരെ അറസ്റ്റൊന്നും നടന്നില്ലെന്നും പോലീസ് വൃത്ത്ങ്ങൾ അറിയിച്ചു

അഞ്ച് പേർക്ക് പരിക്കേറ്റു നാസിക്കിൽ പോകാൻ ഷാഹാപ്പൂറിൽ കിനാവലി പാലത്തിനു സമീപം ബസ് കാത്തു നിന്നവർക്ക് നേരെ നിയന്ത്രണം വിട്ട കാറിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ താനെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

നിലവിൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഇരു ടീമുകളും സെമി ഫൈനൽ ബെർത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ന് ജയിക്കുന്ന ടീമിന് ഗ്രൂപ്പ് ചാമ്പൃൻമാരുടെ തിളക്കത്തോടെ സെമി ഫൈനലിൽ മൽസരിക്കാനാകും

ഇന്ന് നടക്കുന്ന ഫൈനലിൽ ജപ്പാന്റെ തോഷിഹിരോ ഹസേഗാവയെ രവികുമാർ നേരിടും

എൻ പ്രമേയം പാസാക്കി

എൻ ജനറൽ അസ്ട്രബ്ലിയുടെ മനുഷ്യാവകാശ കമ്മിറ്റി പ്രമേയം പാസാക്കിയത് പ്രമേയത്തിനെതിരെ മൃാൻമറിന്റെ അയൽ രാജ്യങ്ങളായ ചൈന കംബോഡിയ ലാവോസ് റഷ്യ എന്നിവർ വോട്ട് ചെയ്തു

റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നേരെയുള്ള മ്യാൻമർ പട്ടാളത്തിന്റെ അക്രമത്തിൽ മനുഷ്യാവകാശ കമ്മിറ്റി ഉത്കണ്ഠ രേഖപ്പെടുത്തി

ഇവർക്ക് പൌരത്വം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ മ്യാൻമാർ ഗവൺമെന്റ് ഉടൻ നൽകണമെന്നും വിവേചനം അവസാനിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു